മലയാളത്തിലാക്കണമെന്ന ആവശ്യത്തിൽ മുഖൃമന്ത്രി പിണറായി വിജയൻ തിങ്കളാഴ്ച പ്രി എസ്

രാഷ്ട്രപതിയ്ക്കും പ്രിധ്യാനമന്ത്രിയ്ക്കും നിവേദനം നൽകും പുതിയ മോട്ടോർ വാഹന നിയമത്തിലെ പിഴത്തുക ന് ഭേദഗതി വരുത്തുന്നതിൽ കേന്ദ്രത്തിന്റെ ഉത്തരവ് വന്നശേഷം തീരുമാനമെന്ന് ഗതാഗതമന്ത്രി

ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഇന്ന് പ്രഖ്യാപിക്കും

പി എസ് സി ആസ്ഥാനത്ത് സംയുക്ത സമരസമിതി അനിശ്ചിതകാല സമരം നടത്തുന്ന സാഹചര്യത്തിലാണ് ചർച്ച

എസ് ഉൾപ്പെടെ എല്ലാ പരീക്ഷകൾക്കും മലയാളത്തിലും ചോദ്യം വേണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം സാംസ്കാരിക നായകർ ഉൾപ്പെടെ നിരവധി പേർ സമരപ്പന്തലിൽ എത്തിയിരുന്നു മരട് ഫ്ളാറ്റ് കൊച്ചി മരടിലെ ഫ്ളാറ്റുകൾ പൊളിക്കുന്നതിനെതിരെ താമസക്കാർ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും സങ്കടഹർജ്ജി നൽകും

എ മാർക്കും ഇ മെയിൽ വഴി ഹർജി അയയ്ക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഫ്ളാറ്റിൽ നിന്ന് താമസക്കാരെ ഒഴിപ്പിക്കുന്നത് ശരിയല്ലെന്നും തങ്ങളുടെ വാദം സുപ്രീംകോടതി കേട്ടില്ലെന്നും ഹർജ്ജിയിൽ ചൂണ്ടിക്കാട്ടും

തിങ്കളാഴ്ച ഹൈക്കോടതി യിൽ റിട്ട് ഹർജി നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സുപ്രീംകോടതിയിൽ നൽകിയ തിരുത്തൽ ഹർജി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്

ശശീന്ദ്രൻ ഇൻട്രോ പുതുക്കിയ മോട്ടോർ വാഹന നിയമത്തിൽ പിഴത്തുക ഭേദഗതി വരുത്തുന്നതിൽ കേന്ദ്രത്തിന്റെ ഉത്തരവ് വന്നശേഷം അന്തിമ തീരുമാനമെടുക്കുമെന്ന് ഗതാഗതമന്ത്രി എ

ഡി എഫ് സ്ഥാനാർത്ഥി ടോം ജോസ് എൽ

എഫ് സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ എൻ

എ സ്ഥാനാർത്ഥി എൻ ഹരി എന്നിവർ വീടുകൾ കയറിയിറങ്ങി വോട്ട് അഭ്യർത്ഥിക്കുകയാണ്

ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇന്ന് പാലായിൽ പ്രചാരണത്തിനെത്തും

ഡി

ജോസഫും തമ്മിലുളള തർക്കങ്ങൾ ഒത്തുതീർന്ന സാഹചര്യത്തിൽ ഇന്ന് മുതൽ പൊതുയോഗങ്ങൾക്ക് തുടക്കമാകും

ജോസഫ് വിഭാഗം ഇന്ന് പ്രത്യേക യോഗം ചേരുന്നുണ്ട്

എ സ്ഥാനാർത്ഥി എൻ

എ ഇ യിൽ ചെക്ക് കേസിൽ മോചിതനായ എസ്

പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഇന്ന് കേരളത്തിൽ മണിക്കാണ് തിരിച്ചെത്തും

മഴ ഇടുക്കി സംസ്ഥാനത്ത് ഇത്തവണത്തെ കാലവർഷത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടിയത് പാലക്കാട് ജില്ലയിലാണ്

വരുന്ന നാല് ദിവസം കൂടി കേരളത്തിൽ പരക്കെ മഴ കിട്ടും കാലവർഷത്തിന്റെ അവസാന രണ്ടാഴ്ചയിലേക്ക് കടക്കുമ്പോൾ കേരളത്തിൽ അധികം മഴ കിട്ടിയതായി കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു മഴക്കണക്കിൽ ഏറ്റവും പിറകിൽ ഇടുക്കിയാണ്

മടവൂർ പാറ തിരുവന്തപുരം ജില്ലയിലെ ് മടവൂർപാറ ടൂറിസം പദ്ധതികളുടെ ഉദ്ഘാടനം ഇന്ന് വൈകീട്ട് അഞ്ചിന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും

മുംബൈയിൽ ചേരുന്ന സെലക്ഷൻ കമ്മിറ്റി യോഗത്തിന് ശേഷമാണ് ടീമിനെ പ്രഖ്യാപിക്കുക പരമ്പരയിൽ മൂന്ന് ടെസ്റ്റുകളാണ് ഉള്ളത് ഒക്ടോബർ രണ്ടിന് വിശാഖപട്ടണത്താണ് ഒന്നാം ടെസ്റ്റിന് തുടക്കമാകുക

ഇന്ന് പ്രത്യേക പൂജകൾ ഉണ്ടായിരുന്നു

പായിപ്പാട്ടെ ജലോത്സവം പുരോഗമിക്കുന്നു

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ പ്രതിനിധി ആർ

ഓണം ഇടുക്കി ഇടുക്കിയിൽ ഓണം വാരാഘോഷ പരിപാടികൾ രണ്ടു ദിവസം പിന്നിട്ടു

വള്ളംകളിയുടെയും പൂർത്തിയാക്കിയ പവലിയൻ നിർമാണ പ്രവൃത്തികളുടെയും ഉദ്ഘാടനം സ്പീക്കർ പി

സൈക്കിളിൽ എത്തിയ സംഘത്തിൽപ്പെട്ട കൊടുവള്ളി സ്വദേശിയായ ആദിൽ അഫ് സാദിന്റെ മൃതദേഹമാണ് ഇന്ന് രാവിലെയോടെ കണ്ടെത്തിയത്

രാവിലെ കോതമംഗലം എക്സൈസ് സി ഐ ക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം നടത്തിയ റെയ്ഡിലാണ് നഗരസഭ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും കുഞ്ചാവുമായി രണ്ടുപേരെ പിടികൂടിയത്

ലോങ്ജമ്പ് തിരുവോണനാളിൽ കേരളത്തിന്റെയും ഇന്ത്യയുടേയും അഭിമാനം വാനോളം ഉയർത്തി ഇടുക്കിയുടെ സ്വന്തം റിന്റു മാത്യു ചെക്ക് റിപ്പബ്ലിക്കിൽ വെച്ചു നടന്ന ലോക റെയിൽവേ അത്ലറ്റിക് മീറ്റിൽ ലോങ് ജമ്പിൽ സ്വർണ്ണം നേടിയാണ് തോപ്രാംകുടി സ്വദേശിനി ഏത്തക്കാട്ട് റിന്റു മാത്യു നാടിന്റെ അഭിമാനമായത്